നൽകുമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ

തുറക്കേണ്ടതില്ലെന്ന് മന്ത്രി എം

കൊച്ചിയിലെത്തും

അന്ത്യാഞ്ജലി ടടട ടി പി രാമകൃഷ്ണൻ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ ഓണത്തിനു മുമ്പ് നൽകുമെന്ന് തൊഴിലും നൈപുണ്യവും എക്സൈസും വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പെൻഷൻ വിതരണം ഓണത്തിനു മുമ്പ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളും ക്രമീകരണങ്ങളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ക്ഷേമനിധി ചെയർമാൻമാർക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കും മന്ത്രി നിർദ്ദേശം നൽകി ഇതുസംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ വിളിച്ചു ചേർത്ത ക്ഷേമനിധി ബോർഡ് ചെയർമാൻമാരുടെയും ചീഫ് എക്സിക്യുട്ടീവ് ഓഫീസർമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്പുരോഗ്തിയുണ്ടെന്നും ഉടൻ തന്നെ അദ്ദേഹം കരുത്തനായി ജീവീതൃത്തിലേക്ക് മടങ്ങി വരുമെന്നും മുഖ്യമന്ത്രി പിണറായി പിജയ്ൻ പറഞ്ഞു കരുണാനിധി ചികിൽസയിൽ കഴിയുന്ന കാർവേരി ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു ശേഷം സ്ട്രസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

പി രാമകൃഷ്ണൻ ചവറയിൽ ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് കൺസ്ട്രക്ഷൻ അന്താരാഷ്ട്രാ നിലവാരത്തിലാക്കുമെന്ന് തൊഴിലും നൈപുണ്യവും വകുപ്പു മന്ത്രി ടി

രാമകൃഷ്ണൻ

ഡി എഫ് ഉന്നതാധികാര സമിതിയിൽ നിന്ന് മുൻ കെ

സി സി അദ്ധ്യക്ഷൻ വി

സുധീരൻ രാജിവെച്ചു

സി

അതേസമയം രാജിവെക്കാനുണ്ടായ സാഹചര്യമെന്താണെന്നും കാരണമെന്താണെന്നും സുധീരൻ ഇ മെയിലിൽ സൂചിപ്പിച്ചിട്ടില്ല സുധീരന്റെ രാജിയുമായി ബന്ധപ്പെട്ട് കെ

മണി പറഞ്ഞു

ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരടി മാത്രമാണ് ഉയർച്ചയുണ്ടായത്

ട്ടടടടടടടടടടടട ഓണക്കിറ്റ് ഇൻട്രോ ഓണക്കാലത്തെ മറയാക്കി ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വിലക്കയറ്റം നടത്താനുള്ള കരിച്ചന്തക്കാരുടെ ശ്രമങ്ങളെ ചെറുക്കാൻ ഗവൺമെന്റ് പദ്ധതികൾക്ക് രൂപം നൽകി

എല്ലാ കാർഡുടമകൾക്കും സ്പെഷ്യൽ പഞ്ചസാരയും അനുവദിക്കും

കൂടാതെ ഓണം ഫെയറുകളിലൂടെ പ്രതിദിന സമ്മാന്പുംം ലഭിക്കും

ഓണക്കാല്ത്തെ പൂഴ്ത്തിവയ്പ്പും കരിച്ചന്തയും തടയാൻ കളക്ടർമാരൂടെ നേതൃത്വത്തിൽ പ്രത്യേക സ്കാഡും പ്രവർത്തിക്കും

സംസ്ഥാന നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് അദ്ദേഹം കൊച്ചിയിൽ എത്തുന്നത് ഏഴിന് രാവിലെ ഒൻപതിന് ബോൾഗാട്ടി പാലസിൽ ചീഫ് ജസ്റ്റിസിനും മറ്റ് ഹൈക്കോടതി ജഡ്ജിമാർക്കുമൊപ്പം പ്രഭാതഭക്ഷണത്തിനു ശേഷം തൃശൂരിലേക്ക് പുറപ്പെടും

മകൻ അജിൻ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിൽസയിലാണ്

ട്ടടടടടടടടടടട കൊച്ചി മെട്രോ കൊച്ചി മെട്രോയുടെ ഏഴാം രൂപീകരണദിനാഘോഷത്തിന്റെ ഭാഗമായി മെട്രോ ജീവനക്കാർ ഇന്ന് ന്യ്ത്രദാന സമ്മതപത്രത്തിൽ ഒപ്പുവെക്കും ഇതിനുപുറമെ ഐഎൽഎ യുടെ രക്തബാങ്കിന് രക്തദാനവും ജീവനക്കാർ നിർവ്വഹിക്കും

സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ കൊച്ചി കൽവത്തി കമ്മ്യൂണിറ്റി ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു

ബാബുരാജിന്റെയും കോഴിക്കോട് അബ്ദുൾഖാദറിന്റെയും പിൻമുറക്കാരൻ ഇനി ഓർമ്മകൾക്ക് ശ്രുതിയിടും മലയാളിയുടെ ചുണ്ടിൽ ഗസൽഗാനങ്ങളുടെ ഭാവരാഗങ്ങൾ നിറച്ചത് ഉമ്പായിയാണ് ഉത്തരേന്ത്യൻ സദസുകളിൽമാത്രം പരിചിതമായിരുന്ന ഗസൽ സന്ധ്യകളെ ഉമ്പായി കേരളത്തിലേക്കും പറിച്ചു നട്ടു വിരഹവും പ്രണയവും കണ്ണീരുപ്പുമെല്ലാം കലർന്ന ആ നാദ ധാരയിൽ നാം ലയിച്ചു മധുര മനോജ്ഞ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയും പഴയ ഭാവഗാനങ്ങൾക്ക് ഗസലിന്റെ ആലാപന സൌകുമാര്യം പകർന്നും ഉമ്പായി ജനമനസുകൾ കീഴടക്കി

ജീവിതാനുഭവങ്ങളുടെ വ്യഥയും നഷ്ടസ്വപ്നങ്ങളുടെ വിതുമ്പലുകളുമെല്ലാം ജനപ്രിയ രാഗങ്ങളിൽ അദ്ദേഹം കാത്തുവച്ചു

കൊയിലാണ്ടി മൂടാടി സ്വദേശി വില്ലാഹിൽ ബസാറിൽ റോബർട്ട് റോഷന്റെ മകൻ ജിജോ റോബർട്ട് നടുവണ്ണൂർ കാവിൽ സ്വദേശി ഒറ്റപ്പുരയ്ക്ക് അബ്ദുൾ ഹമീദിന്റെ മകൾ ഫഷ്മിത എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇരുവരും കടവക്കാട് ഐ ടി

കൊയിലാണ്ടി പോലീസ് ഇൻകിസ്റ്റ് നടത്തി മൃതദേഹങ്ങൾ കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി

പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യണം

ഐ

ജി ഒ

സി

ഒ

വൈസ് പ്രസിഡന്റ് ബി

അബ്ദുൾ മുത്തലിബ് അദ്ധ്യക്ഷിത ്വഹിച്ചു

ഡാം തുറന്ന ഇന്നലെ തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുൾപ്പെടെ ഒന്പതിനായിരത്തോളം പേരാണ് ഉദ്യാനം സന്ദർശിച്ചത്

വനംകൃഷിപൊതുമരാമത്ത് അധികൃതരാണ് റിപ്പോർട്ട് നൽകിയത്

രണ്ടായിരം കോടിരൂപയുടെ പദ്ധതിക്ക് സ്ഥലം വിട്ടുനൽകാൻ കർഷകർ സമ്മതപത്രം ഒപ്പിട്ടാൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും

ആഗസ്റ്റ് ഏഴിനാണ് ആഭ്യന്തരവകുപ്പിലെ സെക്രട്ടറി ധർമ റെഡ്സിയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം എത്തുക

മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോട്ടയ്ം ് പത്തനംതിട്ട മേഖലകളിൽ സന്ദർശനം നടത്തും കേരളത്തീലെ മഴക്കെടുതിയും പ്രശ്നങ്ങളും വിലയിരുത്താൻ കേന്ദ്രസംഘ്ത്തെ ്അയയ്ക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു കേരളം സന്ദർശിച്ചപ്പോൾ ഉറപ്പ് നൽകിയിരുന്നു

ശൈലജ പറഞ്ഞു